ഇന്ത്യയ്ക്ക് നിർണ്ണായക സ്ഥാനമെന്ന് പ്രധാനമന്ത്രി രാജ്യത്ത് കോവിഡ് രോഗമുക്തി ഏറ്റവും ഉയർന്ന നിരക്കിൽ

രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത പല മഹത്വ്യക്തികളേയും ചരിത്രം വിസ്മരിച്ചത് ദൌർഭാഗൃകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കരറ്റ്സെവിന്റെ ചരിത്ര കുതിപ്പ് ദിമിത്രോവിനെ വീഴ്ത്തി സെമി ഫൈനിൽ വനിതാ വിഭാഗത്തിൽ സെറീനയും സെമിയിൽ

ഇന്ത്യയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളായവരുടെ എണ്ണം അമേരിക്കയിലേയോ യൂറോപ്യൻ ജനസംഖ്യയേക്കാൾ ഉയർന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വിപുലമായതാണെന്നും ശ്രീ

ഉത്തർപ്രദേശിൽ മഹാരാജ സുഹേൽദേവ് സ്മാരകത്തിന്റെ നിർമ്മാണോത്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി പ്രവീണ വോയിസ് മഹാരാജാ സുഹേൽദേവ് രാജ്യത്തിനു നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാവില്ല നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ബാബാ സാഹിബ് അംബേദ്കർ തുടങ്ങിയ മഹാന്മാരോട് ചരിത്രം അനീതി കാട്ടിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു നമ്മെ അടിമകളാക്കി വച്ചിരുന്നവർ എഴുതിയുണ്ടാക്കിയതു മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രം നമ്മുഭ്ട്ട നാടോടി കഥകളിലും ഇതിഹാസങ്ങളിലും രാജ്യത്തിന്റെ ചരിത്രം ടെ കൊള്ളുന്നുണ്ടെന്നും അടിമത്തി മനോഭാവത്തിൽ എഴുതപ്പെട്ട ചരിത്ര രേഖകളിൽ പല മഹത് വൃക്തിക്ളും തമസ്കരിക്കപ്പെട്ടതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വന്തം ജീവിതവും പ്രവർത്തനങ്ങളുമെല്ലാം രാജ്യ നന്മക്കു വേണ്ടി സ്ഥർപ്പിച്ച് വൃക്തിത്വങ്ങളെയും അവരുടെ സംഭാവനകളെയും തരത്തിൽ അംഗീകരിക്കാതിരിക്കുകയും അവരെ തമസ്കരിക്കുകയും ചെയ്യുന്നത് ചരിത്രം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി കേടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ചിത്തൌറ നദിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു മഹാരാജാ സുഹേൽദേവിന്റെ നാമകരണം ചെയ്ത മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

കേന്ദ്ര റെയിൽവേ മന്ത്രി പിയൂഷ് ഗോയലിന്റെ ട്വീറ്റിന് മറുപടിയായി ഇന്ത്യൻ റെയിൽവേയുടെ പരിശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു

തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ സുതാര്യമായും ലളിതമായ നടപടിക്രമങ്ങളിലൂടേയും ജനങ്ങൾക്ക് ഇ ഷവാനി പോർട്ടലിലൂടെ ലഭ്യമാകും

നാരായണ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നൃഷ്ടമായി ഇന്ന് ഒരു കോൺഗ്രസ് എം

എ കൂടി രാജി വച്ച്തോടെയാണ് നാരായണ സ്വാമി സർക്കാർ പ്രതിസന്ധിയിലായ്ത്

എൽ എ ജോൺകുമാറാണ് ഇന്ന് രാജി സമർപ്പിച്ചത് രണ്ട് ദിവസം മുമ്പ് പൊതുമരാമത്ത് മന്ത്രി എ

കോൺഗ്രസ് എം എൽ

സിദ്ധിയിൽ നിന്ന് സത്നയിലേക്ക് പോയ ബസ് നിയന്ത്രണം വിട്ട് കനാലിൽ പതിക്കുകയായിരുന്നു

മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായി അഞ്ച്ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

നിഖിത ജേക്കബിന്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ ബോംബെ ഹൈക്കോടതി നാളെ വിധി പറയും ഗ്രെറ്റ തുൻബെർഗിന് ടൂൾ കിറ്റ് നൽകിയത് താനല്ലെന്ന് നിഖിത ജാമൃഹർജിയിൽ ചൂണ്ടിക്കാട്ടി

വനിതാ വിഭാഗത്തിൽ ആധിഥേയ താരം സിമോണ ഹാലെപ്പിനെ തകർത്ത് യു

താരം സെറീന വില്യംസ് സെമിയിലെത്തി

ഓസ്ട്രേലിയൻ ഓപ്പണിൽ സെറീനയുടെ ഒമ്പതാം സെമി ഫൈനൽ പ്രവേശമാണിത് മറ്റൊരു മത്സരത്തിൽ തായ്വാൻ താരത്തെ തകർത്ത് ലോക മൂന്നാംനമ്പർ താരം ജപ്പാന്റെ നവോമി ഒസാക്കയും സെമിയിലെത്തി

ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് ശക്തമായ രീതിയിലാണ് ചെക്പോക്കിൽ ഇന്ത്യ പകരം വീട്ടിയത്

എസ് സി റാങ്ക് പട്ടിക്യിലുള്ളവരുടെ സമരത്തിൽ രാഷ്ട്രീയ നേട്ടം കൊതിക്കുന്ന പ്രതിപക്ഷത്തിന്റേത് കുത്സിത നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബിജെപിയുടെ പോഷക സംഘടനയായ ഒബിസി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അനവാധ്യ